മുൻഗണന നൽകുന്നതായി രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ്

സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രി അമിത് ഷാ വിലയിരുത്തി

ദേവനന്ദയുടെ മൃതദേഹം വീട്ടരികിലെ പള്ളിമൺ ആറ്റിൽ കണ്ടെത്തി

കൊറോണ മഹാമാരിയായി മാറാനുള്ള ശേഷി ഉണ്ടെന്നും ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ലോകാരോഗൃ സംഘടന

ഇന്നലെ വൈകുന്നേരം രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു വിൻ മിന്റിനെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ സന്നദ്ധമായ അയൽപക്കം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മ്യാൻമാർ പങ്കാളിത്തം സുപ്രധാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങളെ മൃാൻമാറിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന തീരുമാനത്തെ രാഷ്ട്രപതി പ്രശംസിച്ചു ഊർജ്ജം ഗതാഗതം ഡിജിറ്റൽ കണക്റ്റിവിറ്റി ടൂറിസം പൈതൃക സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മ്യാൻമറുമായുള്ള പങ്കാളിത്തം വിപുലീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാല് ദിന സന്ദർശനത്തിനായി ബുധനാഴ്ചയാണ് മ്യാൻമാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്

രാമന് നൊബേൽ സമ്മാനം നേടികൊടുത്ത രാമൻ പ്രഭാവത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇതേ തിയതിയിലായിരുന്നു നടന്നത് കുടൂതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ

ദിനാചരണത്തോടനുബന്ധിച്ച് ശാസ്ത്ര വിനിമയ പുരസ്കാരങ്ങളും വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള പുരസ്കാരങ്ങളും ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്യും

ദിനാചരണത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശാസ്ത്ര സമൂഹത്തിന് ആശംസകൾ നേർന്നു ജനജീവിതം സന്തോഷപ്രദവും സുഖപ്രദവുമാക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കണമെന്നും എല്ലാ ശാസ്ത്രജ്ഞരോടും ഗവേഷകരോടും ഉപരാഷ്ട്രപതി തന്റെ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടു രാജ്യത്ത് ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് കൈക്കൊ് വരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദേശത്തിലൂടെ അറിയിച്ചു ഇന്ത്യൻ ശാസ്ത്ര മേഖല ഇനിയും കൂടുതൽ വളരട്ടെയന്നും രാജ്യത്തെ യുവജനത ശാസ്ത്ര മേഖലയോട് കൂടുതൽ താൽപര്യം കാണിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു

സുരക്ഷ്മ ഉദ്യോഗസ്ഥർ മേഖലയിൽ സൂക്ഷ്മ നിരീക്ഷണം തുടരുകയാണ്

സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഇന്നലെ നേരിട്ട് വിലയിരുത്തി വ്യാജപ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു

ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികളിലൂടെ പതിനയ്യായിരത്തോളം പേർക്ക് തൊഴിൽ ലഭിക്കും ഭക്ഷ്യ സംസ്ക്കരണത്തിന് ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് കർഷകർക്ക് സ്ഥിരവരുമാനം ഉറപ്പാക്കും ന്യൂഡൽഹിയിൽ ഭക്ഷ്യ സംസ്ക്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൌർ ബാദലിന്റെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

മന്ത്രാലയ സെക്രട്ടറി ഡോ

ജമ്മു സാംബ കത്വ പ്രദേശങ്ങളിൽ മുള ഉത്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുളളി പുതിയ ക്ലസ്റ്ററുകൾ ആരംഭിക്കാൻ ധാരണാ പത്രത്തിൽ ഒഷ്പുപ്പക്കാനും ശ്രീ ജിതേന്ദ്ര സിംഗ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശ് നൽകി കർഷകർക്ക് സാങ്കേതിക പിന്തുണ നൽകുന്നതുവഴി വരുമാനം വർദ്ധിപ്പിക്കാനും ഈ ധാരണാ പത്രത്തിലൂടെ കഴിയും

സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ അവലോകന യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ജമ്മു കശ്മീരിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും സാങ്കേതിക വിദ്യാഭ്യാസം സുപ്രധാമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മൃതദേഹം കരയിൽ എത്തിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേയ്ക്ക് കൊണ്ടുപോയി

കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രസ്സേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ക്യേർള് ഉഹെക്കോടതി തള്ളിയിരുന്നു

എല്ലാസൌകര്യങ്ങളും ലഭിച്ചുകൊിരുന്ന ഹാഫിസ് സെയ്ദിനെ പോലുളള കൊടും ഭീകരർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്

അതിർത്തികടന്നുള്ള് ത്രീപ്രവാദ പ്രവർത്തനങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ലെന്ന ഇന്ത്യയുടെ ്നിലപാടാണ് ബലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ സന്ദേശ്ം ബാലാക്കോട്ട് വ്യോമാക്രമണം അതിർത്തികടന്നുളള തീവ്രവാദത്തിനെതിരെയുള്ള പ്രതിരോധത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനവും പ്രചോദനവും നൽകുക സുപ്രധാനമാണെന്ന് സംയുക്ത സേനാമേധാവി ജനറൽ ബിപിൻ റാവത്ത് സെമിനാറിൽ പറഞ്ഞു

ചൈനയ്ക്കു പുറമെ ദക്ഷിണ കൊറിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിലും വൈറസ് വ്യാപകമായി പടർന്ന് പിടിക്കുന്നതിനെ തുടർന്ന് ഭീതി ഫ്രർദ്ധിച്ചിരിക്കുകയാണ്

പാക്കിസ്ഥാൻ ജനക്ഷേമത്തിലും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും ശ്രദ്ധനൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു

പാക് പ്രകോപനം ഒഴിവാക്കിയാൽ ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേയ്ക്ക് മടങ്ങുകയാണെന്നും ക്യൂണ്ട്രസിലിൽ ഇന്ത്യ അറിയിച്ചു

ശ്രീലങ്കയിലെ തലൈമന്നാറിൽ നിന്നുള്ള തൊഴിലാളികളാണ് രാമേശ്വരത്തിനടുത്ത് ധനുഷ്കോടിയിൽ പിടിയിലായത് കേന്ദ്ര സംസ്ഥാന സുരക്ഷാർ ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്

അന്വേഷ്ണിത്തിൽ മൂന്ന് കിലോ ഗ്രാം സ്വർണ്ണം ഇന്ത്യയിലേയ്ക്ക് കടത്തൂർ ഇവർ ശ്രമിച്ചിരുന്നതായി കത്തി

ഇദ്ലിബിലെ സൈനിക നടപടികൾ ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കു കാരണമാകുമെന്ന് ഐക്യരാഷ്ട്ര സഭ മുന്നറിയിപ്പു നലകിയിരുന്നു